ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെട്ടുക്കണ്മെന്ന് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധി രാജിപ്പെക്കേണ്ടതില്ലെന്ന് പാർട്ടി പ്രവർത്തക സമിതി

എ പാർലമെന്ററി പാർട്ടി നേതാവ് നരേന്ദ്ര മോദിയെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ക്ഷണിച്ചു നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പുതിയ പ്രധാ നമന്ത്രിയായി രാഷ്ട്രപതി നിയമിച്ചുവെന്ന് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനം അറിയിച്ചു

പിയിലെയും എൻ

എയിലെയും പുതിയ എം പി മാർ നേതാവായി തെരഞ്ഞെടുത്തിനെത്തുടർന്ന് ഗവൺമെന്റ് രൂപീകരണത്തിന് രാഷ്ട്രപതിയെ കണ്ട് നരേന്ദ്രമോദി അവകാശം ഉന്നയിച്ചിരുന്നു രാഷ്ട്രപതിയെ കണ്ട എൻ

എ നേതാക്കൾ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന എം പിമാരുടെ പട്ടിക അദ്ദേഹ ത്തിന് കൈമാറുകയും ചെയ്തു രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തീയതിയും സമയവും അറിയിക്കാനും മന്ത്രിമാരുടെ പട്ടിക കൈമാറാനും രാഷ്ട്രപതി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു ജനവിധി അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഉത്ത രവാദിത്വം തന്നിൽ അർപ്പിതമാക്കിയിരിക്കുകയാണെന്ന് രാഷ്ട്ര പതിയെ കണ്ട ശേഷം നരേന്ദ്രമോദി പറഞ്ഞു ഉടൻ തന്നെ മന്ത്രി മാരുടെ പട്ടിക രാഷ്ട്രപതിക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറി യിച്ചു ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്ന് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആരോടും വിവേ ചനം കാണിക്കാതെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യ പ്പെട്ടു പാർലമെന്റ് സെൻട്രൽ ഹാളിൽ എൻ

എ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം എം പിമാരെ അഭിസംബോധന ചെയ്യു കയായിരുന്നു നരേന്ദ്രമോദി

ന്യൂനപക്ഷങ്ങ ളെയും പാവപ്പെട്ടവരെയും വോട്ട് ബാങ്കുകളായി കണ്ട രാഷ്ട്രീ യമായിരുന്നു ദശാബ്ദങ്ങളായി നമ്മുടെ നാട്ടിലെന്ന് അദ്ദേഹം പറ ഞ്ഞു

എയ്ക്ക് വോട്ട് ചെയ്യാത്ത എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കരുതെന്നും ഒരു മണി ക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ മോദി നിർദ്ദേശം നൽകി രാജ്യം വി

പി സംസ്കാരത്തെ വെറുക്കുകയാണ് ഈ സംസ്കാരം ഇല്ലാത്ത പുതിയ ഇന്ത്യയാകണം നമ്മുടെ മുഖമുദ്രയെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനയ്ക്ക് മുന്നിൽ ശ്രിരസ്സ് നമിച്ച് വന്ദിച്ചതിന് ശേഷ മായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പരാജയത്തെത്തുടർന്ന് കോൺഗ്രസ് അധ്യ ക്ഷസ്ഥാനം രാഹുൽഗാന്ധി രാജി വെക്കേണ്ടതില്ലെന്ന് പാർട്ടി പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു രാഹുലിന്റെ രാജി സന്നദ്ധത ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം തള്ളി സ്ഥാനം രാജി വെക്കു മെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചുനിന്നെങ്കിലും നേതാ ക്കൾ അനുവദിച്ചില്ല എല്ലാ തലങ്ങളിലും ഉടൻ പാർട്ടിയെ പുനഃ സംഘടിപ്പിക്കാൻ പ്രവർത്തക സമിതി അദ്ദേഹത്തോട് ആവശ്യ പ്പെട്ടു തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടെങ്കിലും പോരാട്ട വീര്യവും അസാമാന്യ ധൈര്യവും ആദർശത്തോടുള്ള പ്രതിബ ന ദ്ധതയും മുമ്പെന്നത്തേക്കാളും ശക്തമായി തുടരുമെന്ന് പ്രവർത്തക സമിതി അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും ശക്തികൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും പ്രമേയം വൃക്തമാക്കി

വോട്ടർമാർക്കും തന്റെ വിജയത്തിനായി രംഗത്തിറങ്ങിയ യു

എഫ് പ്രവർത്തകർക്കും നന്ദി അറിയിക്കാൻ ഉടൻ തന്നെ വയ നാട് സന്ദർശിക്കുമെന്ന് കോൺഗ്ര്സ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച എല്ലാ വരോടും നന്ദി പറയുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ മലയാളത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അറിയിച്ചു രാഹുൽ ഗാന്ധി രാജി വെയ്ക്കേണ്ട കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു നേരത്തെയും ഇത്തരം പരാജയങ്ങൾ പാർട്ടി നേരിട്ടിട്ടുണ്ടെന്നും രാഹുലിന്റെ രാജി പ്രശ്ന പരിഹാരമല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ വൻ ജനക്കൂട്ടമുണ്ടായെങ്കിലും അതൊന്നും വോട്ടാക്കി മാറ്റാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും പാർട്ടി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ചെന്നിത്തല പറ ഞ്ഞു ആന്ധ്രാപ്രദേശിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ വൈ

ആർ കോൺഗ്രസ് നേതാവ് ജഗൻ മോഹൻ റെഡ്ഡിയെ ഗവർണർ ഇ

എൽ നരസിംഹൻ ക്ഷണിച്ചു

പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെത്തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെയ്ക്കാൻ മമതാർബാനർജി സന്ന ദ്ധത അറിയിച്ചെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആവശ്യം നിരാ കരിച്ചു ബംഗാളിൽ വോട്ട് നേടുന്നതിന് ബ്പി

പി ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ധ്രുവീകരിക്കുകയാണെന്ന് കൊൽക്കത്ത യിൽ നടത്തിയ വാർത്താ സമ്മേളനൃത്തിൽ മമതാ ബാനർജി കുറ്റപ്പെടുത്തി

മാതൃകാ പെരുമാറ്റചട്ടം നിലവിൽ വന്നു

തീര ദേശ പൊലീസ് സ്റ്റേഷനുകളും ജില്ലാ പൊലീസ് മേധാവികളും എല്ലാ സംവിധാനങ്ങളുമൊരുക്കി കടലോരത്ത് ജാഗ്രത പുലർത്ത ണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതേത്തുടർന്ന് കടലിലും കരയിലും പട്രോളിംഗ് ശക്തമാ ക്കി ഇത്തരം നിർദ്ദേശങ്ങൾ സ്വാഭാവികമാണെങ്കിലും ഇത്തവണ ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് പറഞ്ഞു കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലും ഇതിന്റെ ഭാഗമായി കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ തീരദേശ മേഖ ലയിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് പൊലീസ് ഒരുക്കു ന്നത്

കുട്ടികളെ കുത്തിനി റച്ച് പോകുന്നതോ മറ്റ് നിയമ ലംഘനം നടത്തുകയോ ചെയ്യുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതടക്കം നടപടി സ്വീകരിക്ക ണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലണ്ടനിൽ ലോകകപ്പ് ക്രിക്കറ്റിന് മുന്നോടിയായ സന്നാഹ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് പരാജയം ഓവലിൽ ഇന്ത്യയെ ആറ് വിക്കറ്റിനാണ് ന്യൂസിലാൻഡ് തോൽപ്പിച്ചത്

ഇന്ന് വൈകിട്ട് മൂന്നിന് പാക്കിസ്ഥാൻ ബംഗ്ലാദേശിനേയും ദക്ഷിണാഫ്രിക്ക വെസ്റ്റിൻഡീനേയും നേരിടും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഇളനീരാട്ടം ഇന്ന് ആദ്യത്തെ ആരാധനയായ തിരു വോണം ആരാധനയും ഇളനീർവെപ്പും ഇന്നലെ നടന്നു അക്കരെ കൊട്ടിയൂരിലെത്തിച്ച ഇളനീർ കാവുകൾ ഇന്ന് രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളന്മാർ ചെത്തിയൊരുക്കി എടുക്കും

രണ്ടാ മത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ് വിശുദ്ധിയുടെ നിറവിൽ റമദാൻ അവസാന പത്തിലേക്ക് കട ന്നു ഖുർആൻ അവതരിച്ച അനുഗ്രഹത്തിന്റെ രാത്രിയായ ലൈല ത്തുൽ ഖദ്ർ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിലെന്നാണ് വിശ്വാസം അവസാന പത്തിൽ പ്രാർത്ഥനയും ദാനധർമ്മവും വർദ്ധിക്കും സംസ്ഥാനത്ത് സപ്ലൈകോ റംസാൻ മെട്രോ ഫെയറുകൾ നാളെ ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നട്ടക്കും

തിരഞ്ഞെടു ക്കപ്പെട്ട സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ പ്രീപ്പിൾസ് ബസാറു കൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവയും റുംസാൻ ഫെയറുക ളായി പ്രവർത്തിക്കും അടുത്തമാസം നാലിന് സമാപിക്കും പാലക്കാട് ഗവ മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ഥിരാംഗീകാരം ലഭ്യമായത് സംസ്ഥാന ഗവർണ്മെന്റിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഫലമാണെന്ന് മന്ത്രി എ

സംസ്ഥാന ഗവർണമെന്റിന്റെ ഇടപെടലിൽ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയതിനാലാണ് ഇപ്പോൾ സ്ഥിരാംഗീകാരം ലഭിച്ചത്

പ്രഫഷനൽ കോഴ് സുകളിൽ പഠനത്തോടൊപ്പം പ്രായോഗിക പരിശീലനം നിർബന്ധമാക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി ജെ

സമ്പൂർണ്ണ സീറോ വേസ്റ്റ് ജില്ലയായി കോഴിക്കോട് മാറണമെങ്കിൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് മന്ത്രി ടി

കോഴിക്കോട് ജില്ലയിൽ ജലസംഭരണം പൊതുജനാരോഗ്യ സംരക്ഷണം മാലിന്യനിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ഉൌന്നൽ നൽകുന്ന ശുച്ചിത്യ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പകയുടേയും ബോംബിന്റെയും രാഷ്ട്രീയം വേണ്ടെന്ന് നിയുക്ത എം

തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ചെറുവത്തൂരിൽ സ്വീക രണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വീകരണയോഗം തടസ്സപ്പെടുത്താൻ ഒരു സംഘം സി

യു പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പൊലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്തിനെ വിധവ സൌഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി

വിധവാ സൌഹൃദ പഞ്ചായത്ത് ആയതോടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ നേടാനാകും അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്ക് സമ്പൂർണ്ണ സ്കൂൾ പ്രവേശനം ഉറപ്പാക്കുന്ന പ്രവേശന പ്രചാരണത്തിന് കോതമംഗലത്ത് തുടക്കം കുറിച്ചു സമഗ്ര ശിക്ഷാ കോതമംഗലം ബി

സിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ആന്റണി ജോൺ എം

ഇതിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവകാശ നിയമ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും എറണാകുളം ജില്ലയിലെ പ്രളയബാധിത് മേഖലകളായ വടക്കേ ക്കര ചേന്ദമംഗലം പഞ്ചായത്തുകൾ ലോകബാങ്ക് പ്രതിനിധികൾ സന്ദർശിച്ചു പ്രളയ ധനസഹായമായി ലോകബാങ്ക് സംസ്ഥാന ത്തിന് നൽകുന്ന പണം ഏതെല്ലാം മേഖലകളിലാണ് വിനിയോ ഗിക്കേണ്ടതെന്ന് പഠിക്കാനാണ് സംഘം എത്തിയത് കാർഷികം പരമ്പരാഗത വൃവസായം വീടുകളുടെ പുനർ നിർമ്മാണം എന്നി വയിലാണ് ഫണ്ട് പ്രധാനമായും ചെലവഴിക്കുക സംഘം നേരത്തെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ദേശീയ പുരസ്കാരം നേടിയ മറാഠി ചിത്രം എലിസബത്ത് ഏകാദശി ഇന്ന് രാവിലെ പ്രദർശിപ്പിക്കും ഉച്ച മുതൽ മൂന്ന് ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടാകും ചലച്ചിത്രോത്സവം നാളെ വൈകിട്ട് സമാപിക്കും